വൈബ്രന്റ് ഗുജറാത്ത് ആഗോള ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും

അനധികൃത ഖനനപ്പുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് കേസ് രജിസ്റ്റർ ചെയ്തു

രണ്ടു വർഷത്തിൽ ഒരിക്കലുള്ള ഈ നിക്ഷേപക സംഗമത്തിൽ അഞ്ച് രാഷ്ട്രതലവന്മാരും വിവിധ കമ്പനി തലവന്മാരുൾപ്പെടെ മുപ്പതിനായിരത്തിലേറെ ദേശീയ അന്താരാഷ്ട്ര പ്രതിനിധികളും പങ്കെടുക്കുന്നു

ആശുപത്രിയെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ ഭാഗമാക്കുമെന്നും അതുവഴി പൌരന്മാർക്ക് സൌജന്യ ചികിത്സാ സൌകര്യങ്ങൾ സ്വീകരിക്കാനാകുമെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി

പൊതു വിഭാഗത്തിലെ സ്റ്റ്ബിത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശത്യമാന്നു

ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു അതേസമയം അനധികൃത ഖനനവുമായി ബന്ധപ്പെട്ടകേസിൽ മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ ബി ചന്ദ്രകല ഉൾപ്പെടെയുള്ളവർക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് സമൻസ് അയച്ചു കേസിൽ അടുത്തയാഴ്ച അവരെ ചോദ്യം ചെയ്യും

വീഡിയോ കോൺഫറൻസിംഗിലൂടെ മുംബൈയിലെ സ്ഥകാര്യ വാർത്താ ചാനലിൽ സംവദിക്കുകയായിരുന്നു അദ്ദേഹം കൂടുതൽ വിവരങ്ങളുമായി ഗോപ്പിക്കുമാർ

പ്രതിപക്ഷ പാർട്ടികൾ വിവിധ വിഷയങ്ങളിൽ ഒത്തൊരുമിച്ച് മുന്നോട്ട് വന്നാലും ജനങ്ങൾക്കിടയിൽ ഇവരുടെ വിശ്വാസൃത നിലനിൽക്കില്ലെന്നും ശ്രീ ജെയ്റ്റ്ലി കൂട്ടിച്ചേർത്തു ഒരു പ്രത്യേക വൃക്തിയെ നേതാവായി ഉയർത്തിക്കൊണ്ടുവരാനോ രാജൃത്തെ കെട്ടിപ്പടുക്കാനോ ഉതകുന്ന തരത്തിൽ പ്രത്യയശാസ്ത്രപരമായ യോജിപ്പോ പൊതു ധാരണയോ ഈ മഹാഗഡ്ബന്ധൻ അഥവാ മഹാസഖ്യത്തിനില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബി ജെ പി യുടെ ശക്തമായ നേതൃത്വത്തിന്റെ നിശ്ചയദാർഡ്യം മികച്ച പ്രകടനം കഴിവ് എന്നിവയ്ക്ക് ബദലായി പ്രതിപക്ഷം മുന്നോട്ടുവയ്ക്കുന്നത് ഏതാനും കണക്കുകളാണ് രാഷ്ട്രീയത്തിൽ കണക്കുകളല്ല രസതന്ത്രമാണ് ജയിക്കുന്നതെന്നും ശ്രീ ജെയ്റ്റ്ലി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച് സംസ്ഥാന അധികൃതരുമായി കൂടിയാലോചന നടത്തുന്നതിനിടെയാണ് കമ്മീഷന്റെ നിർദ്ദേശം

സ്വദേശ ജില്ലകളിൽ ജോലിയെടുക്കുന്നവരുടെ കാരൃത്തിലും ഉടൻ തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശമുണ്ട് തിരഞ്ഞെടുപ്പിൽ കള്ളപ്പണവും കായികബലവും ഉപയോഗപ്പെടുത്തുന്നത് തടയണമെന്നും സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ ചിലവിലും കൃത്യമായ നിരീക്ഷണം വേണമെന്നും ആവശ്യൂർപ്പട്ടിട്ടുണ്ട്

യുണിസ്പെയ്സ് നാനോ സാറ്റ്ലെറ്റ് അസംബ്ലി ആൻഡ് ട്രെയിനിംഗ് ഉന്നതി എന്ന് പേരിട്ടിരിക്കുന്ന പരിശീലന പരിപാടി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ബംഗളൂരുവിൽ ഉദ്ഘാടനം ചെയ്തു ഇന്തൃയുടെ ബഹിരാകാശ മേഖലയിലെ അറിവും വൈദഗ്ദ്ധൃവും മറ്റു രാജൃങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഐ എസ് ആർ

വിഷയത്തിൽ മെഷീൻ ലേണിംഗ് വിഭാഗത്തിൽ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാം ഇപ്പോൾ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദ് ഐ ഐ ടിയെ കൂടാതെ ലോകത്ത് നിർമ്മിത ബുദ്ധി സാങ്കേതികതയിലെ ബിരുദ കോഴ്സ് കാർണഗി മെല്ലൺ സർവ്വകലാശാലയിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലുമാണ് നിർമ്മിത ബുദ്ധി സാങ്കേതികതയിലെ ഉന്നതപഠനത്തിന് ആരോഗ്യ സംരക്ഷണം മണ്ണ്പരിപോഷണം വിള സംരക്ഷണം കാലാവസ്ഥാ പ്രവചനം സൂക്ഷ്മ നിരീക്ഷണം സുരക്ഷ പ്രതിരോധം എന്നീ മേഖലകളിൽ നിർണായക പങ്ക് വഹിക്കാനാകുമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡീൻസ് സുമോഹന ചന്നപ്പയ്യ ഒരു പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്

പൊലീസും സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്

വിലക്ക് നിലവിൽ വന്ന് മൂന്ന് ദീവസ്ം പിന്നിടുമ്പോഴാണ് ഗവൺമെന്റിന്റെ തീരുമാനം മുഖ്യമന്ത്രിട്ട് നിതീഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് വിലക്ക് നീക്കിയതെന്ന് ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സഞ്ചയ് സിൻഹ അറിയിച്ചു

പി ജയരാജൻ

ഖനനം നിർത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ലെന്നും ശ്രീ

ഇതിന് ശേഷം സമരസമിതി പുതിയ ആവശൃങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പരിഹരിക്കുമെന്നും ശ്രീ

ബോഗോട്ടയിലെ പോലീസ് അക്കാദമിയിലാണ് തീവ്രവാദികൾ കാർ ബോംബ് സ്ഫോടനം നടത്തിയത്

ഇന്ത്യയ്ക്കുവേണ്ടി ലെഗ് സ്പിന്നർ യൂസ്വേന്ദ്ര ചഹൽ ആറ് വിക്കറ്റ് വീഴ്ത്തി

ഇരു ടീമുകളും ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച് പരമ്പര ഇപ്പോൾ സമനിലയിലാണ് അതിനാൽ ഇന്നത്തെ ജയം ഇരുടീമുകൾക്കും അനിവാര്യമാണ്